കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി

ഭക്ഷ്യ സുരക്ഷ ഉള്ൾജ്സുരക്ഷ സാമ്പത്തിക സ്ഥിരത ഭീകരത ഡിജിറ്റൽ സമ്പദ്ദി വ്യ്വസ്ഥയിലെ നവീകരണം നിർമ്മിത ബുദ്ധി എന്നിവ ഉച്ചൂക്ടോടിയിൽ ചർച്ചയാകും

ഇരുപതിലധികം രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഇന്റർനെറ്റ് സംബന്ധിച്ച് പാരീസിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ ആയിരുന്നു തീരു മാനം ഡിജിറ്റൽ കാര്യങ്ങൾക്കുള്ള ഫ്രഞ്ച് അംബാസഡർ ഹെന്റി വെർഡിയറും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഇ ഗവേണൻസ് ജോയിന്റ് സെക്രട്ടറി ഉപേന്ദ്രർ സിംഗ് റാവത്തും കൂടിക്കാ ഴ്ചയിൽ സംബന്ധിച്ചു

വിശാലവും ശാന്തത യും സുരക്ഷിതവുമായ ഇന്റർനെറ്റ് ഉപയോഗം സാധ്യമാക്കാൻ ഇന്തൃയും ഫ്രാൻസും യോജിച്ച് ശ്രമിക്കുമെന്നും ധാരണയായി

വില പിടിച്ചു നിർത്താൻ എണ്ണ ഉദ്പാദക രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക് നടപടി കൈക്കൊള്ളണമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതി മന്ത്രി വാതക ടിറ്ററിലൂടെ ആവശ്യപ്പെട്ടു സംഘടനയിലെ പ്രമുഖ അംഗമായ സൌദി അറേബ്യയ്ക്ക് ഇതിൽ പ്രധാന പങ്കുവഹിക്കാനാകുമെന്ന് സൌദി ഊർജ്ജ മന്ത്രി ഖാലിദ് ടെലിഫോൺ സംഭാഷണത്തിൽ ശ്രീ

ഹൈഡ്രോ കാർബൺ മേഖലയിൽ ഇരുരാജ്യങ്ങൾക്കുമി ടയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതു സംബന്ധിച്ച് ചർച്ച നടന്ന തായി കേന്ദ്രമന്ത്രി അറിയിച്ചു ഇൻഡൃയുടെ പെട്രോ കെമിക്കൽ എണ്ണ ശുദ്ധീകരണ രംഗത്തെ സൌദി നിക്ഷേപം സംബന്ധിച്ചും കേന്ദ്ര മന്ത്രി അവലോകനം നടത്തി

ജെ

നാല് പേരെ ബി ജെ പി ലിസ്റ്റിൽപെടുത്തിയ വിവരം രാജ്യസഭാ ചെയർമാന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചതായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു

ചൌധരി സി

മോഹൻ റാവു ടി

വെങ്കിടേഷ് എന്നീ നാല് അംഗങ്ങൾ ഇന്നലെ രാജ്യസഭാ ചെയർമാൻ വെങ്കയ്യനായിഡുവിന് പാർട്ടിയുടെ ബി ജെ

പൂർണ്ണ് നേരത്തെ തെലുങ്കുദേശം പാർട്ടിയിലെ ബാക്കിയുള്ളിക്ക് ർണ്ടു രാജ്യസഭാംഗങ്ങളും മൂന്ന് ലോക്സഭാ അംഗങ്ങളും ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡുവിനെ സന്ദർശിച്ച് കൂറുമാറിയ ്നാലുപേരെയും അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ടു

എസ് ഖിലാഫത്ത് സ്ഥാപിക്കാനുള്ള ശ്രമത്തിലായിരുന്നെന്ന് ദേശീയ അന്വേഷണ ഏജൻസി അറിയിച്ചു ഡൽഹിയിൽ വലിയ തോതിലുള്ള ആക്രമണം നടത്താൻ ഇവർ പദ്ധതിയിട്ടെന്നും കണ്ടെത്തി

രാജ്യം വൃക്തമായി പുരോഗതി കൈവരിച്ചെന്നും എഫ്

എൻ സെക്യൂരിറ്റി കൌൺസിലിലെ സ്ഥിരം അംഗങ്ങളും

അതേസ മയം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫ്ഫോഴ്സിന്റെ നിർദ്ദേശ പ്രകാരം ഭീകരതയ്ക്ക് ധനസഹായം നൽക്കൂന്നത് അവസാനിപ്പിക്കാൻ പാക്കിസ്ഥാന് കഴിഞ്ഞിട്ടില്ലെന്ന് സംഘടന അറിയിച്ചു ഈ വർഷം ഒക്ടോബറോടെ ഭീകരത്തിക്ക് ധനസഹായം നൽകുന്നത് നിർത്തിവയ്ക്കുന്നതുമായീ ബന്ധപ്പെട്ട പ്രവർത്തന പദ്ധതി പൂർത്തിയാ ക്കണമെന്നും എഫ്

എഫ് പാക്കിസ്ഥാന് നിർദ്ദേശം നൽകി

നാലുവിക്കറ്റ് നേടിയ മലിംഗയാണ് കളിയിലെ താരം

നേരിയതും മിതമായതുമായ മഴ പൂർണിയയിലും കതിഹാറിലും സമീപ പ്രദേശ ങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്

ആന്ധ്രാ പ്രദേശിലേക്ക് കടന്ന മൺസൂൺ തെലങ്കാനയുടെ ചില പ്രദേശങ്ങളെയും ബാധിച്ചിട്ടുണ്ട്

പ്രധാന സ്ഥലങ്ങളും തലസ്ഥാന നഗരികളും കൂടാതെ ചെറിയ പ്രദേശങ്ങളിലും യോഗദിനത്തിന്റെ ആഘോഷങ്ങൾ നടന്നു ഇത് ജനങ്ങൾക്കിടയിൽ യോഗയ്ക്ക് ഏറിവ രുന്ന പ്രസക്തിയാണ് ചൂണ്ടിക്കാട്ടുന്നത്

എ

ഇറാനാണ് അമേരിക്കയുടെ അളില്ലാ വിമാനം വെടിവെച്ച് വീഴ്ത്തിയതെന്നാണ് ആരോപണം സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് ഒമാൻ മേഖല എന്നിവിടങ്ങളിലെ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള വ്യോമപാതയിലൂടെ അമേരിക്കൻ വിമാനങ്ങൾ പറക്കുന്നത് യു

ന്റെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേ ഷൻ വിലക്കി

വിമാനങ്ങൾ ജോർജ്ജിയയി ലേക്ക് പറക്കുന്നത് വിലക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുട്ടിൻ ഉത്തരവ് ഇറക്കി ജോർജ്ജിയൻ തലസ്ഥാനമായ തിബിലിസിൽ റഷ്യൻ നിയമസഭാംഗം പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത തിനെ തുടർന്ന് ജോർജ്ജിയയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട സാഹ ചരൃത്തിലാണ് ഇത് ഇടക്കാല തിരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ട് തിബിലി സ്സിൽ പ്രക്ഷോഭം തുടരുകയാണ്

കല്ലട ഉടമ സുരേഷിനോട് യോഗത്തിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്